കേന്ദ്ര മന്ത്രിസഭയിലെ സമിതികളിൽ മാറ്റം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിനെ ആറ് സമിതികളിൽ ഉൾപ്പെടുത്തി

ദ്വിദിന ഭൂട്ടാൻ സന്ദർശ്ന്ത്തിനായി വിദേശകാരൃമന്ത്രി എസ് ജയ്ശങ്കർ ഇന്ന് യാത്ര തിരിക്കും

ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും രണ്ടാംവട്ടം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ പൊതു സമ്മേളനം നാളെ ഗുരുവായൂരിൽ

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാൻ പോരാട്ടം

എട്ട് സമിതികളാണ് ഗവൺമെന്റ് ബുധനാഴ്ച പുനസംഘടിപ്പിച്ചത്

പാർലമെന്റികാര്യം രീഷ്ട്രീയകാര്യം നിക്ഷേപം വളർച്ചയും തൊഴിൽ നൈപുണ്യ വികസനവും എന്നീ സമിതികളിൽ കൂടി ശ്രീ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയതായി മന്ത്രിസഭാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ പ്രതിരോധമന്ത്രി ആറ് മന്ത്രിസഭാ സമിതികളിൽ അംഗവും പാർലമെന്ററികാര്യ സമിതി തലവനുമായിരിക്കും നേരത്തെ അദ്ദേഹം സാമ്പത്തികകാര്യ സമിതിയിലും സുരക്ഷാ സമിതിയിലും മ്യൂത്മാണ് അംഗമായിരുന്നത്

എല്ലാ സമിതികളിലും അംഗമായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗവൺമെന്റ് താമസ സൌകര്യ സമിതിയുടെ തലവനുമായിരിക്കും

എട്ട് സമിതികളിൽ നിക്ഷേപം വളർച്ചയും തൊഴിൽ നൈപുണ്യ വികസനവും എന്നിവ പുതുതായി രൂപീകരിച്ച സമിതികളാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജയശങ്കർ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു സന്ദർശനത്തിനിടെ ശ്രീ ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടേ ഷെറിങ്ങിമായും വിദേശകാരൃമന്ത്രി താന്തിദോർജിയുമായും കൂടിക്കാഴ്ച നടത്തും അതിനിടെ ഷാങ്ഹായ് സഹകരണ വാർഷിക ഉച്ചുകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോട്ടി പ്രാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനുമായി കൂടിക്കാഴ്ച നട്ടര്ത്ത്ങ്നുള്ള സാധൃത ഇന്തൃ തള്ളി

ഊട്ടിയുപ്പിക്കാൻ സന്ദർശനം സഹായകമാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖ്ലെ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഞായറാഴ്ച പ്രധാനമന്ത്രി ശ്രീലങ്കയും സന്ദർശിക്കും അയൽരാജൃങ്ങളുമായി ഇന്തൃയുടെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളിലേയ്ക്കുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വഴിവയ്ക്കുമെന്ന് ശ്രീ ഗോഖ്ലെ അഭിപ്രായപ്പെട്ടു

കൊച്ചിയിൽ ഗസ്റ്റ് ഗൌസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി ശനിയാഴ്ച രാവിലെ നാവിക വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തും ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി പിന്നീട് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയായി രണ്ടാമത് അധികാരമേറ്റതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ പൊതു സമ്മേളനമാണ് ഇത് പിന്നീട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഡൽഹിക്ക് തിരിച്ചുപോകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാക്രമീകരണങ്ങൾളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്

ഹർഷവർധൻ ന്യൂഡൽഹിയിൽ ഇന്നലെ നിപ രോഗം സംബന്ധിച്ച തൽസ്ഥിതി അവലോകനം ചെയ്തു

അതിനിടെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക വാർഡുകളിൽ നിരീക്ഷണത്തിലായിരുന്നവരിൽ ആറ് പേരുടെ രക്തസാമ്പിളുകളിൽ രോഗാണു സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്

ഇതിൽ നാല് പേരെ തിരിച്ചറിഞ്ഞു

മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനായി ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും നോർക്ക അറിയിച്ചു

തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രിക്ക് ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി

ഉച്ചയ്ക്ക് കോഴിക്കോട് വിമാനത്താവള്ത്തിലെത്തുന്ന രാഹുൽ മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്ട്പ്പട്ടിട്ട് മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുടർ തുടർന്ന് റോഡ് മാർഗം കല്പറ്റയിലെത്തും

പഞ്ച്റാൻ ലാസിപോര മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്നലെ രാത്രി ഒരു ഭീകരനും ഇന്ന് പുലർച്ചെ മൂന്നുപേരുമാണ് കൊല്ലപ്പെട്ടത്

കൊല്ലപ്പെട്ട ഭീകരർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല മേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ തുടരുകയാണ്

ഇന്ത്യൻ നാവിക സേനാ പ്പിമാനം ഇന്ന് നിരീക്ഷണ പറക്കൽ നടത്തും സമീപ പ്രദേശത്തെ കാട്ടുകൾ ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലും വിമാനത്തിനായി തിരച്ചിൽ നടത്തും

എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിലുള്ള നിരാശയല്ല പദവി ആവശ്യപ്പെടാനുള്ള കാരണമെന്നും അവർ വ്യക്തമാക്കി വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുമായുള്ള സഖ്യത്തിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കോലാപൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

ഗംഗാഖ്ഖേദ് പഞ്ചസാര ഊർജ്ജ സ്വകാരൃ ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനായ രത്നാകർ ഗുട്ടെക്കിന് എതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ക്രിമിനൽ കേസെടുത്താണ് എൻഫോഴസ്മെന്റ് ഡയറ്കട്രേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്

അഞ്ചുപേർ സംഭവ സ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരണമടഞ്ഞതെന്ന് പൊലീസ് അറിയിച്ചു പരിക്കേറ്റ രണ്ട് പേരുടെ നില ഗുരുതരമാണ് ഗുണ്ടൂർ ജില്ലയിൽ നിന്നും തിരുപ്പതിയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ആണ് അപകടത്തിൽപെട്ടത്

ഇന്ത്യൻ ഇൻഫർമേഷൻ സർവ്വീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം

ടൂർണ്ണമെന്റിലെ ഓസ്ട്രേലിയയുടെ രണ്ടാം വിജയമാണിത്